കോൺഗ്ര സിലെ കെ സി വേണുഗോപാൽ അടക്കം കേരള എം പിമാർ നല്കിയ നോട്ടീസിലാണ് സ്പീക്കർ ചർച്ചക്ക് അനുമതി നൽകി യത് കേരളത്തിലെ മഴക്കെടുതി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

എന്നാൽ മിക്ക പ്രദേശങ്ങളിലും വെളളക്കെട്ടുണ്ട് കുട്ടനാട് താലൂ ക്കിൽ പ്രൊഫഷണൽ കോളജ് ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയായിരിക്കും

ഇതിനായി പ്രത്യേക ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കുട്ട നാട്ടിലെയും അമ്പലപ്പുഴയിലെയും വെള്ളക്കെടുതി നേരി ടുന്ന കൃാമ്പുകൾ മന്ത്രി സന്ദർശിച്ചു വെളളം ഇറങ്ങിയാലുടൻ ദുരിതം നേരിടുന്നവർക്ക് സൌജന്യ റേഷൻ അനുവദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെളളത്തിൽ മുങ്ങികിടക്കുന്ന ആലപ്പുഴ ചങ്ങനാ ശ്ശേരി റോഡ് വെളളമിറങ്ങിയാലുടൻ മികച്ച രീതിയിൽ പുനഃസ്ഥാപിക്കും കുട്ടനാടൻ മേഖലയിൽ കൂടുതൽ യാത്രാബോട്ടുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു

വരുംദിവ സങ്ങളിൽ മൂന്ന് ആംബുലൻസുകൾ കൂടി സജ്ജമാക്കു മെന്ന് അദ്ദേഹം അറിയിച്ചു ദേശീയ ആരോഗ്യദൌത്യവും ജലഗതാഗ്ത വകുപ്പും സംയുക്തമായാണ് ആധുനിക സൌകര്യങ്ങളോടെ ജല ആംബുലൻസ് സേവനം ആരം ഭിച്ചത്

മട വീണ് നശിച്ച പാടശേഖരങ്ങളും കർഷകർ നിർമ്മിച്ച ബണ്ടും മന്ത്രി സന്ദർശിച്ചു

കോട്ടയം കടുത്തുരുത്തിക്ക് സമീപം കരി യാറിൽ തോണി മറിഞ്ഞാണ് രണ്ട് പേരെ കാണാതായ ത് സ്വകാര്യ ചാനലിന്റെ പ്രാദേശിക ലേഖകൻ കടുത്തു രുത്തി സ്വദേശി സജി തിരുവല്ല ബ്യൂറോയിലെ ഡ്രൈവർ ബിബിൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്

രണ്ട് ഡോണിയർ വിമാനങ്ങളും ഗോവ യിൽ നിന്നെത്തിയ കോസ്റ്റ് ഗാർഡിന്റെ സമുദ്ര പ്രഹരി കപ്പലും ഉപയോഗപ്പെടുത്തി തെരച്ചിൽ തുടരുകയാണ് ശനിയാഴ്ച രാവിലെയാണ് ഇവർ ചെറിയ തോണിയിൽ മത്സൃ ബന്ധനത്തിന് പുറപ്പെട്ടത്

മഴക്കെടുതി യിൽ എട്ടുപേരാണ് മരിച്ചത്

കെ രാഘവൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം ഐ ഷാന വാസ് എന്നിവരാണ് വ്യോമയാന ഡയറക്ടർ ജനറലിനെ നേരിൽ കണ്ട് ഈ ആവശ്യം ചർച്ച ചെയ്തത് ഹജ്ജ് എംമ്പാർക്കേഷൻ പോയന്റ് കരിപ്പൂരിൽ പുനഃസ്ഥാപി ക്കണമെന്നും എം പിമാർ ആവശ്യപ്പെട്ടു

കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം

കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയ ത്തിൽ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഓസ്ട്രേലിയൻ എ

ഇന്നലെ ആദ്യ കളിയിൽ എറണാകുളം ഇടുക്കി ജില്ലാ ടീമുകളും കോഴിക്കോട് റൂറൽ കെ എ

മന്ത്രി കെ രാജുവും സ്ഥലം എം എൽ എ വി എസ് അച്യുതാനന്ദനും പങ്കെടുത്ത യോഗത്തി ലാണ് തീരുമാനം കാട്ടാനകളുടെ ആക്രമണത്തിൽ മരി ച്ചവരുടെ ആശ്രിതർക്ക് സഹായധനം എത്രയും വേഗ ത്തിൽ നൽകാനും യോഗം തീരുമാനിച്ചു

കൊല്ലം പെരുമ്പുഴയിലെനവീകരിച്ച കാപെക്സ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഇതി നായി ഫാക്ടറികളുടെ നവീകരണത്തിലൂടെ ഉത്പാ ദന ക്ഷമത വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് സമഗ്ര കാർഷിക വികസന പദ്ധതി കൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ ചെങ്ങന്നൂരിൽ പറഞ്ഞു സംസ്ഥാന കൃഷി വകുപ്പിന്റെ കർഷക ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മന്ത്രി

പാലുല്പാദനത്തിൽ ഈ വർഷം അവസാനത്തോടെ സംസ്ഥാനം സ്വയം പര്യാപ്തത നേടുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം കുടപ്പനക്കുന്നിൽ പൌൾട്രി ഡെവലപ്മെന്റ് കോർപറേഷന്റെ നവീകരിച്ച ഹാച്ചറി സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ പത്താമത് ശിക്ഷക് സദൻ മൂന്നാറ ിൽ മന്ത്രി പ്രൊഫ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളെയും അടുത്ത അധ്യയന വർഷത്തോടെ ഹൈടെക് ആക്കുമെന്ന് മന്ത്രി പറഞ്ഞു വിനോദ സഞ്ചാര മേഖലയ്ക്ക് കൂടി പ്രയോ ജനം ലഭിക്കുന്ന വിധം മൂന്നാറിലെ ശിക്ഷക് സദന് പ്രവർത്തിക്കാനാവുമെന്ന് ചടങ്ങിൽ അധൃക്ഷനായിരുന്ന മുന്ത്രി എം എം മണി പറഞ്ഞു

വന്ന വഴി മറന്ന ആളാണ് താനെന്ന് ആർക്കും പറയേണ്ടി വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് പൌരാവലി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു കുമ്മനം രാജശേഖരൻ

മണിപ്പാൽ വൈറോ ളജി കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ ഷിഗെല്ല ബാധിച്ചില്ലെന്ന് സ്ഥിരീകരിച്ചത് ഗുരു തരമായ നിർജ്ജലീകരണം മൂലമാണ് മരണമുണ്ടായ തെന്ന് അധികൃതർ അറിയിച്ചു

കേസിലെ പ്രതികളെ പിടികൂടണമെന്നും കുടുംബത്തിന് ധനസഹായം നൽക ണമെന്നും ആവശ്യപ്പെട്ട് ബന്ധു സൂര്യകുമാറും ഭാര്യ നീലിമ റോയിയും ചേർന്നാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറിയത്

ബാലൻ മാസ്റ്റർ കോഴിക്കോട്ട് അന്തരിച്ചു സംസ്കാരം രാവിലെ ഒൻപതിന് വടകര് മയ്യന്നൂരിലെ വീട്ടുവളപ്പിൽ

വിവാദ നോവൽ പ്രസിദ്ധീക രിച്ച സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയശേഷം മാതൃ സമിതി സംസ്ഥാന രക്ഷാധികാരി പ്രൊഫസർ വി ടി രമ അറിയിച്ചതാണിത്

ലയനപ്രഖ്യാപനം ഇന്ന് തിരുവനന്തപുരത്ത് നട ക്കും എൽ ഡി എഫ് വിപുലീകരണത്തിന് ഘടക കക്ഷികളുമായി ചർച്ചയാരംഭിക്കുന്നതിന് മുന്നോ ടിയായാണ് ലയനം

വൈദ്യുതി ഉത്പാദനം ശരാശരി എട്ട് ദശലക്ഷം യൂണി റ്റിലധികമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്

ടി വാസുദേവൻനായർക്ക് സമർപ്പിച്ചു തിരൂർ തുഞ്ചൻസ്മാരക ട്രസ്റ്റ് കേന്ദ്രത്തിലായിരുന്നു പുരസ്കാരദാനചടങ്ങ് തരിശ്ശുവയലുകൾ ഏറ്റെടുത്ത് കൃഷിചെയ്യാൻ കാർഷി ക തൊഴിൽസേന രൂപീകരിക്കുന്നതിന് സംസ്ഥാന കർഷകതൊഴിലാളി യൂണിയൻ കാസർകോട് ജില്ലാഘ ടകം തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി പടന്നക്കാട് കാർഷികകോളജിൽ ശില്പശാല സംഘടിപ്പിച്ചു